പാകിസ്ഥാനോട് ഇന്ത്യ

ശ്രമങ്ങൾ തുടരാമെന്ന് സുപ്പിട്ട്കോടതി

ഡി എസ്

സംഭവത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ലാഘവത്വം കാണിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി

ചന്ദ്രയാൻ രണ്ട് വിക്ഷേപണം തിങ്കളാഴ്ച

ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധൃത മീൻപിടുത്തക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം

അന്താരാഷ്ട്രനീതി ന്യായ കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഈ ആവശ്യം ഇന്ത്യയോടൊപ്പം മാത്രമല്ല മറിച്ച് നീതിയിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ഒപ്പമാണ് ഈ വിധിയെന്ന് വിദേശകാര്യമന്ത്രി ഡോ

പാർലമെന്റിന്റെ ഇരുസഭകളിലും കുൽഭൂഷൺ ജാദവ് വിഷയത്തിൽ പ്രസ്താവന നടത്തുകയായിരുന്നു അദ്ദേഹം കുൽഭൂഷണിനെ സുരക്ഷിതമായി തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഗവൺമെന്റ് ഊർജ്ജിതമായി തുടരുമെന്നും ശ്രീ ജയ്ശങ്കർ അറിയിച്ചു

കേസിൽ വിചാരണ വേണമോ എന്ന കാര്യത്തിൽ അടുത്തമാസം ഒന്നിന് തീരുമാനമെടുക്കുമെന്നും കോടതി പറഞ്ഞു ഖലീഫുള്ള സമിതി സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് സുപ്രീംകോടതി നിർദ്ദേശം

കുമാരസ്വാമി നിയമസഭയിൽ വിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു വിശ്വാസവോട്ടെടുപ്പ് പ്രക്രിയ ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കണമെന്ന് പ്രമേയം അവതരിപ്പിച്ച ഉടൻ ബിജെപി അംഗവും പ്രതിപക്ഷ നേതാവുമായ ബി

കോൺഗ്രസ് ജെഡിഎസ് സഖ്യത്തെക്കുറിച്ച് നിരവധി സംശയങ്ങളാണ് നിലനിൽക്കുന്നതെന്നും അത് രാജ്യത്തിന് മുന്നിൽ തുറന്ന് കാട്ടണമെന്ന് ശ്രീ കുമാരസ്വാമി പറഞ്ഞു

എൽ എ മാർ സ്പീക്കർക്ക് രാജി സമർപ്പിച്ചതിനെ തുടർന്ന് ജെഡിഎസ് കോൺഗ്രസ് സഖ്യം ന്യൂനപക്ഷമായി മാറിയിരിക്കുകയാണ്

സ്പീക്കർ പക്ഷപാതപമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ബിജെപി അംഗങ്ങൾ ഗവർണർക്ക് പരാതി നൽകി

കാർഷിക മേഖലയിൽ വളർച്ചാ പുരോഗതി ഭക്ഷ്യ സംസ്ക്കരണം സ്വകാര്യ നിക്ഷേപം എന്നീ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു മുഖ്യമന്തി നവോത്ഥാന സംരക്ഷണത്തിന് ഒരേ മനസോടെ മുന്നോട്ടു പോകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തിരുവനന്തപുരത്ത് നടന്ന നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കക്ഷിരാഷ്ട്രീയ ഭിന്നതയുടെ ഭാഗമായി നവോത്ഥാന മൂല്യ സംരക്ഷണത്തെ കാണാനാവില്ല

സിയുടേത് കുറ്റമറ്റ പരീക്ഷാ സംവിധാനമാണെന്നും യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രശ്നത്തിന്റെ മറവിൽ പി എസ് സിയെ ആക്ഷേപിക്കുന്ന വാർത്തകളാണ് വന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു യൂണിവേഴ്സിറ്റി കോളേജ് സംഭവത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ലാഘവത്വം കാണിച്ചിട്ടില്ല പോലീസിന്റെ പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങളും കോട്ടങ്ങളും മുഖ്യമന്ത്രിയെന്ന നിലയിൽ ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്തതെന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞു യൂണിവേഴ്സിറ്റി മുല്ലപ്പള്ളി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റീ കോളജ് കൌമാര കുറ്റവാളികളെ വളർത്തിയെടുക്കുന്ന കേന്ദ്രമായി മാറിയെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമച്ചൂന്ദ്ൻ സംസ്ഥാനത്തെ നഗരങ്ങളെ കീഴടക്കിവെച്ചിട്ടുള്ള മ്യൂഫിയാ സംഘങ്ങളിൽ പലരും ക്യാംപസിൽ നിന്നും വന്ന എസ് എഷ്ട് ഐ പ്രവർത്തകരാണെന്ന് കേരളാ പൊലീസിന്റെ പഠനത്തിൽ നിന്നും വ്യക്തമാകുന്നതായി ശ്രീ മുല്ലപ്പള്ളി കൽപ്പറ്റയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

അംഗീകാരം ലഭിച്ച പ്താനിൽ ചട്ടലംഘനം നടന്നിട്ടുണ്ട്

കൂടാതെ ക്സാനിന് വിരുദ്ധമായി ചില മാറ്റങ്ങളും നിർമ്മാണ വേളയിൽ നടത്തിയതായും ഗവൺമെന്റ് അറിയിച്ചു മുല്ലപ്പള്ളി ആന്തൂരിൽ ആത്മഹത്യ ചെയ്ത പ്രവാസി വ്യവസായി സാജൻ കെട്ടിടനിർമ്മാണം ചട്ടം ലംഘിച്ചെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുക വഴി ഗവൺമെന്റ് ആ കുടുംബത്തെയും കേരളീയ പൊതുസമൂഹത്തേയും വഞ്ചിച്ചെന്ന് കെ

സി

കൃഷ്ണദാസ് സംസ്ഥാനത്തെ പല കോളേജ് ്രകാമ്പസുകളും അധോലോക കേന്ദ്രങ്ങളായി അധപതിച്ചിരീക്കുകയാണെന്ന് ബി ജെ പി നേതാവ് പി

ഇതിന് പിന്നിൽ എസ്

ഐ നേതാക്കളും കോളേജ് പ്പിൻസിപ്പാളും ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട അധ്യാപകരുമാണെന്ന് അദ്ദേഹം ആരോപിച്ചു

കൂടുതൽ വിവരങ്ങളുമായി സുവർണ

ഇടുക്കിയിൽ ഇന്ന് മുതൽ മറ്റന്നാൾ വരെയും പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ നാളെയും കണ്ണൂർ ജില്ലയിൽ ഞായറാഴ്ചയും നിരീക്ഷണ കേന്ദ്രം റെഡ് അലെർട്ട് പ്രഖ്യാപിച്ചു ഈ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് ഗവൺമെന്റ് സംവിധാനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട് നാളെ ആലപ്പുഴ എറണാകുളം എന്നീ ജില്ലകളിലും മറ്റന്നാൾ എറണാകുളം ജില്ലയിലും ഞായറാഴ്ച ഇടുക്കി എറണാകുളം ജില്ലകളിലും ഓറഞ്ച് അലെർട്ട് പ്രഖ്യാപിച്ചു ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായതോ അതിശ്ിക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്

എസ് ആർ ടി സി ബസ്റ്റാന്റ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെളളം കയറിയിരിക്കുകയാണ് ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുന്നു

ഡിജിറ്റൽ ലബോറട്ടറികൾ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഡിജിറ്റൽ ലബോറട്ടറികൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ് കോഴിക്കോട് പറഞ്ഞു നാല് മാസത്തിനകം സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും ഹൈടെക്ക് ആകുന്നതോടെ ഈനേട്ടം കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറും ഇതിന് അനുസരിച്ച് അധ്യാപകരും മാറണമെന്നും മന്ത്രി പറഞ്ഞു

ആന്റി നർക്കോട്ടിക് സ്പെഷൽ സ് കാഡും പുൽപ്പള്ളി പോലീസ് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇന്നലെ പെരിക്കല്ലൂരിൽ നിന്നും ഹാൻസ് പിടികൂടിയത് അറസ്റ്റ് വയനാട് വൈത്തിരിയിൽ സ്ത്രീയ്യെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ക്ലെയ്തു

കൊലപാതകത്തിന് ശ്ലേഷ്പ്രതി കർണാടകയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു

കേരള ബാങ്ക് മലപ്പുറം ജില്ലാ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിക്കാനുള്ള പ്രമേയം രണ്ടാം തവണയും വോട്ടിനിട്ട് തള്ളി

യോഗത്തിൽ അവതരിപ്പിച്ച ലയന പ്രമേയത്തെ കൂടുതൽ അംഗങ്ങളുള്ള യു ഡി എഫ് എതിർത്തു മനുഷ്യാവകാശ കമ്മീഷൻ ലോക്കപ്പ് മർദ്ദനങ്ങൾക്കൂർ ക്സ്റ്റഡി മരണങ്ങൾക്കും ഇടവരുത്തുന്ന പോലീസ്സ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചു വിടുന്നത് ഉൾപ്പ്പെടെയുള്ള മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ഗവൺമെന്റിന് നിർദ്ദേശം നൽകി വനിത കമ്മീഷൻ സമൂഹ മാധ്യമങ്ങൾ വഴി സ്ത്രീകളെ അപമാനിക്കുന്ന കേസുകളുടെ എണ്ണം വർധിക്കുന്നതായി സംസ്ഥാന വനിത കമ്മീഷൻ സ്ത്രീകളെ തകർക്കുന്നതിനും അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുമാണ് സമൂഹ മാധ്യമങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതെന്ന് കമ്മീഷൻ അംഗം ഇ